രാജ്യത്തെ എല്ലാവർക്കും ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറ് ലൈറ്റ്ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയതിന് മധ്യപ്രദേശ് സർക്കാരിന് ശ്രീ മോദി പുരസ്കാരം സമ്മാനിച്ചു

ഗ്ലോബൽ ഹൌസിംഗ് ടെക്നോളജി ചലഞ്ച് ഇന്തൃയുടെ കീഴിൽ നടപ്പാക്കുന്ന ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ

രാജ്യത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിന് ഇന്ന് തുടക്കം കുറിച്ച ആറ് ലൈറ്റ്ഹൌസ് പദ്ധതികൾ സഹായകരമാകും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് നിർധനർക്കായി താങ്ങാവുന്ന ചെലവിൽ ചുരുങ്ങിയ കാലയളവിൽ ഭവനം നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന മികച്ച രീതിയിൽ നടപ്പാക്കിയവർക്കുളള വാർഷിക പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു കേന്ദ്രമന്ത്രി ഹർദീപ്സിംഗ് പുരിയോടൊപ്പം ത്രിപുര ത്ധാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു

ഡ്രൈ റണ്ണിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരുകൾ പൂർത്തീകരിക്കണമെന്നും യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശം നൽകി വാക്സിൻ വിതരണത്തിലെ അപാകതകൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യമെന്ന് ശ്രീ ഹർഷവർധൻ വ്യക്തമാക്കി

തിരുവനന്തപുരത്ത് മൂന്ന് ആശുപത്രികളിലും മറ്റ് ജില്ലകളിൽ ഓരോ ആശുപത്രികളിലുമാണ് ഡ്രൈ റൺ നടത്താൻ തീരുമാനമായത്

പൂനെ നാഗ്പൂർ ഉൾപ്പെട്ടെയുളള നാല് പ്രധാന നഗരങ്ങളെയാണ് ഡ്രൈ റണ്ണിനായി തെർത്ത്തടുത്തിട്ടുളളത്

എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ

ആരാധാലയങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധ്പ്പെട്ട പരിപാടികൾക്കും അനുമതി നൽകി

ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന മേള കോവിഡ് വ്യാപനത്തെത്തുടർന്നു മാറ്റിവയ്ക്കുകയായിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം എറണാകുളം പാലക്കാട് തലശ്ശേരി എന്നീ നാലു മേഖലകളിലായി ആയിരിക്കും ഇത്തവണ മേള സംഘടിപ്പിക്കുക

രജിസ്ട്രേഷ്ഠന്റ് കോവിഡ് നെഗറ്റിവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്

സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശകർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും വ്യത്യസ്ത സമയക്രമവും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ടി ്വർുമാനം ഒരു ലക്ഷം കോടി രൂപ കവിയുന്നത്

പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ നിന്നുളള ശീതകാറ്റ് വരും ദിനങ്ങളിൽ ശക്തിയാർജ്ജിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പു നൽകിയിട്ടുണ്ട്

ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഢ് ഉത്തർപ്രദേശ് പടിഞ്ഞാറൻ മധ്യപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് ശീതക്കാറ്റും അതിശൈത്യവും ശകതമായി തുടരുന്നത്

നാലരവർഷം നീണ്ട ബ്രെക്സിറ്റ് ചർച്ചകൾക്കും വോട്ടെടുപ്പുകൾക്കും ശേഷമാണ് നടപടി ബ്രിട്ടീഷ് പാർല്ല്മെൻറിലെ ഇരുസഭകളും ചേർന്ന് പാസാക്കിയ ബ്രെക്സിറ്റ് ബില്ലിന് ബുധനാഴ്ച എലിസബത്ത് രാജ്ഞിയും അനുമതി നൽകിയിരുന്നു ഇതോടെ ബിൽ നിയമമായി

ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഈ വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് മരുന്ന് നിയന്ത്രണ അതോറിറ്റി നിലവിലുളള ഓരോ രാജ്യവും കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം അനുമതിയാണ് നൽകുന്നത് എന്നാൽ ആരോഗ്യമേഖല ദുർബലമായ രാജ്യങ്ങൾ സാധാരണയായി അനുമതിയ്ക്ക് ലോകാരോഗ്യ സംഘടനയെയാണ് സമീപിക്കുന്നത്